തീരത്തെത്തും അടിയന്തിര സാഹചരൃം നേരിടുന്നതിനുള്ള തയ്യാറെടുപ്പുകൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അവലോകനം ചെയ്തു

കുറവ് രേഖപ്പെടുത്തി കേരളത്തിൽ തിരുവനന്തപുരം എറണാകുളം തൃശൂർ മലപ്പുറം ജില്ലകളിൽ ഇന്ന് അർദ്ധരാത്രി മുതൽ ട്രിപ്പിൾ ലോക്ക് ഡൌൺ

സ്ഥിതിഗതികൾ ചർച്ച ചെയ്യാൻ ഇന്ന് യുഎൻ രക്ഷാ സമിതി യോഗം ചേരും

നൊവാക് ജോകോവിച്ച് റഫേൽ നദാൽ പോരാട്ടം

സംസ്ഥാന സർക്കാരുകൾ ജനങ്ങളെ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റി എന്ന് ഉറപ്പുവരുത്തണമെന്ന് അദ്ദേഹം നിർദ്ദേശിച്ചു കോവിഡ് ആശുപത്രികളിലെ സേവനങ്ങൾ വാക്സിൻ ശൃംഖല മറ്റ് ആരോഗ്യ സംവിധാനങ്ങൾ വൈദ്യുതിയുടെ ലഭ്യത ഓക്സിജൻ ടാങ്കറുകൾക്ക് തടസ്സം കൂടാതെ കടന്നുപോകാനുള്ള സൌകര്യങ്ങൾ എന്നിവ ഉറപ്പാക്കണമെന്ന് പ്രധാനമന്ത്രി ആവശൃപ്പെട്ടു വരുംദിവസങ്ങളിൽ അതിശക്തമായ മഴ ലഭിക്കാൻ സാധ്യതയുള്ള ജാംനഗർ മേഖലയിൽ ഓക്സിജൻ വിതരണം തടസ്സപ്പെടാതിരിക്കാനുള്ള എല്ലാ നടപടികളും സ്വീകരിക്കണമെന്നും അദ്ദേഹം നിർദ്ദേശിച്ചു

സ്ഥിതിഗതികൾ നേരിടാൻ സംസ്ഥാനം പൂർണ്ണ സജ്ജമാണെന്ന് ഗുജറാത്ത് മുഖ്യമന്ത്രി വിജയ് രൂപാണി അറിയിച്ചു കോവിഡ് ആശുപത്രികളിൽ വൈദ്യുതി തടസ്സം നേരിടാതിരിക്കാനുള്ള സജ്ജീകരണങ്ങളും ഐസിയു ആംബുലൻസ് സംവിധാനങ്ങളും സജ്ജമാക്കിയിട്ടുണ്ട്

എറണാകുളം ഇടുക്കി മലപ്പുറം ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് മറ്റ് ജില്ലകളിൽ യെല്ലോ അലർട്ടാണ്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

രണ്ട് ദിവസമായി തുടരുന്ന അതിതീവ്രമഴയും ശക്തമായ കാറ്റും കാരണം കേരളത്തിൽ കനത്ത നാശ നഷ്ടങ്ങളുണ്ടായി

കൊച്ചി തീരത്തുനിന്ന് പോയ മീൻപിടിത്ത ബോട്ട് ലക്ഷദ്വീപിനടുത്ത് കടലിൽ മുങ്ങിയതായി വിവരം ലഭിച്ചു ടൌട്ടെ ചുഴലിക്കൊടുങ്കാറ്റിൽ ലക്ഷദ്വീപിൽ വൻ നാശനഷ്ടങ്ങളുണ്ടായി

കൽപ്പേനി ദ്വീപിലെ വിന്റ്രോദ്ദസഞ്ചാര കേന്ദ്രങ്ങൾ വെള്ളത്തിനടിയിലായി

മറ്റന്നാൾ വരെ മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകരുതെന്ന് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് താഴ്ന്ന പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ സുരക്ഷിതമായ സ്ഥലങ്ങളിലേക്ക് മാറ്റി കർണാടക ആഭ്യന്തരമന്ത്രി ബസവരാജ് ബൊമ്മെയും റവന്യൂമന്ത്രി ആർ

ഇന്ത്യൻ തീരസംരക്ഷണസേന നാവികസേന വ്യോമസേന ആരോഗ്യ പ്രവർത്തകരുടെ സംഘം തുടങ്ങിയവയും പ്രവർത്തന സജ്ജമാണ്

ഗ്രാമങ്ങളിൽ പ്രാദേശിക നിയന്ത്രണങ്ങളും ഓക്സിജൻ വിതരണവും കാര്യക്ഷമമായി നടപ്പാക്കണമെന്നും പ്രധാനമന്ത്രി നിർദ്ദേശിച്ചു രാജ്യത്തെ കോവിഡ് ് സ്ഥിതിയും വാക്സിനേഷൻ പ്രവർത്തന ങ്ങളും വിലയിരുത്തുന്നതിനായി ചേർന്ന ഉന്നതതല യോഗത്തിൽ അധ്യക്ഷത വഹിക്കുകയായിരൂന്നു അദ്ദേഹം

ഈ പ്രായത്തിലുള്ള അനുബന്ധരോഗമുള്ള വരെയാണ് ആദ്യ മുൻഗണനാ പട്ടികയിൽ ഉൾപ്പെടുത്തിയിരി ക്കുന്നത്

സോണുകളായി തിരിച്ച് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിലാണ് നിയന്ത്രണം

നിയന്ത്രണങ്ങൾ ലംഘിക്കുന്നവർ ക്കെതിരെ കർശനമായ നടപടിയെടുക്കുമെന്ന് മുഖ്യമന്ത്രി അറിയിച്ചു അനാവശ്യമായി പുറത്തിറങ്ങുക കൂട്ടംകൂടി നിൽക്കുക മാസ്ക് ധരിക്കാതിരിക്കുക കോവിഡ് പ്രോട്ടോക്കോളുകൾ ലംഘിക്കുക തുടങ്ങിയവയെല്ലാം കുറ്റകരമാണ് ഭക്ഷണ വിതരണത്തിനായി ഹോട്ടലുകൾ മെഡിക്കൽ സ്റ്റോർ പെട്രോൾ പമ്പ് എന്നിവ തുറന്നു പ്രവർത്തിക്കും

ന്യൂസ്ഡെസ്ക് ആകാശവാണി

ആർ ഡി ഒ

സിപിഎം സിപിഐ ജനതാദൾ എസ് എൻസിപി മന്ത്രിമാരുടെ കാര്യത്തിൽ ഏകദേശ ധാരണയായാതായി സൂചനയുണ്ട് കേരള കോൺഗ്രസ് എം ജനാധിപത്യ കേരള കോൺഗ്രസ് കേരള കോൺഗ്രസ് ബി ഐഎൻഎൽ ലോക് താന്ത്രിക് ജനതാദൾ എൽജെഡി കോൺഗ്രസ് എസ് എന്നിവയുടെ കാര്യത്തിൽ ചർച്ചകൾ പുരോഗമിക്കുന്നു

സംഘർഷം അവസാനിപ്പി ക്കണമെന്ന് അന്താരാഷ്ട്ര സമൂഹം ഇരുരാജ്യങ്ങളോടും ആവശ്യപ്പെട്ടു

ഇറ്റലിയുടെ ലോറൻസോ സെനഗോയെ കീഴടക്കിയാണ് ജോക്കോവിച്ച് ഫൈനലിൽ എത്തിയത്